പ്രളയത്തിൽ പെട്ട ആദിവാസി പട്ടികജാതി കൂടുംബങ്ങൾക്ക് ഗവ പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു

വക കിറ്റുകൾ നൽകും

പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ തജീന്ദർപാൽ സിംഗ് സ്വർണം നേടിയത് റെക്കോർഡോടെ സംസ്ഥാനത്ത് പ്രളയക്കെടുതിയിൽ സർവ്വതും നഷ്ടപ്പെട്ട വരുടെ പുനരധിവാസത്തിന് ഗവ ശ്രമം ഊർജ്ജിതമാക്കി പ്രള യത്തിൽ മുങ്ങിപ്പോയ വീടുകൾ വാസയോഗ്യമാക്കാൻ സന്നദ്ധ പ്രവർത്തകരുടെ സ്കാഡുകൾ സജീവമായി രംഗത്തുണ്ട് ആറ് ലക്ഷത്തോളം പേരാണ് വിവിധ ക്യാമ്പുകളിലായി കഴിയുന്ന ത്

പ്രളയം സൃഷ്ടിച്ച ആഘാതത്തിൽ കഷ്ടപ്പെടുന്ന ആദിവാസി പട്ടികജാതി കുടുംബങ്ങൾക്ക് സംസ്ഥാന ഗവ പ്രത്യേക സാമ്പ ത്തിക സഹായം പ്രഖ്യാപിച്ചു

പ്രളയബാധിതർക്ക് ഗവ പ്രഖ്യാപിച്ച സഹായത്തിന് പുറമെയാണിത് പ്രളയത്തെ തുടർന്ന് മേഖലയിലുണ്ടായ ദുർഘടാവസ്ഥയും പ്രത്യേക സാഹചര്യവും കണക്കിലെട്ടുത്താണ് പ്രത്യേക ധനസ ഹായം നൽകാൻ പട്ടികജാതി പട്ടിക്വർഗ്ഗ വകുപ്പുകൾ തീരുമാ നിച്ചത് ദുരിതാശ്ചാസ കൃാമ്പുകൾ വിടുന്ന കുടുംബങ്ങൾക്ക് ഇന്നു മുതൽ ഗവ വക കിറ്റുകൾ നൽകും അഞ്ച് കിലോ അരി പയറു വർഗങ്ങൾ മറ്റ് അവൾ്യ സാധനങ്ങൾ എന്നിവ കിറ്റിൽ ഉണ്ടാ വും

മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ആയിരം കോടിരൂപയുടെ കൃഷിനാശമുണ്ടായതായി മന്ത്രി ഡോ

കർഷകർക്ക് എല്ലാം നഷ്ടപരിഹാരം നൽകു മെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ പുനരധിവാസ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്ന് സിആർപിഎഫ് കേന്ദ്രങ്ങൾ ന്യൂഡൽഹി യിൽ അറിയിച്ചു അവശ്യസർവീസുകൾ പുനഃസ്ഥാപിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതായും കേന്ദ്രങ്ങൾ പറഞ്ഞു പ്രളയക്കെടുതി ബാധിച്ച പ്രദേശങ്ങളിൽ കുടിവെളള മാണ് പ്രധാന പ്രശ്നമെന്നും വൈദ്യുതി ലൈനുകൾക്കുണ്ടായ തകരാറാണ് ഇതിന് കാരണമെന്നും സിആർപിഎഫ് അറിയിച്ചു

യൂനിസെഫിന്റെ മൂന്നംഗസംഘം ഇന്നലെ ആലപ്പുഴയിൽ ദുരി താശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു ക്യാമ്പുകളിൽ ശുചിത്വം പാലിക്കുന്നതിലും ഭക്ഷണത്തിന്റെ ഗുണ്നില്വാരത്തിലും സുര ക്ഷയിലും ജില്ലാഭരണകൂടം നടത്തുന്നു ശ്രമങ്ങളെ സംഘം അഭി നന്ദിച്ചു കേരളത്തിന്റെ ആവശ്യത്തിന് അനുസരിച്ച് കൂടുതൽ ദുരി താശ്ചാസ സാമഗ്രികൾ എത്തിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർസിംഗ് അറിയിച്ചു പത്ത്കോടിയുടെ ദുരി താശ്വാസ സാമഗ്രികൾ വിമാനമാർഗ്ഗം എത്തിച്ചതിന് പുറമെയാ ണിത്

ഭാരതീയ് ജനതാ യുവമോർച്ച രാജ്യത്തിന്റെ വിവിധ ഭാഗ ങ്ങളിൽ നിന്ന് ശേഖരിച്ച ദുരിതാശ്വാസ സാമഗ്രികൾ കേരളത്തി ലേക്ക് അയച്ചു ന്യൂഡൽഹിയിൽ ബിജെപി ജനറൽ സെക്രട്ടറി പി മുരളീധർ റാവു വാഹനങ്ങൾ ഫ്ളാഗ്ഓഫ് ചെയ്തു വൻ ദുരന്തം നേരിട്ട കേരളത്തിലെ ജനങ്ങളുടെ വേദനകൾ പാർട്ടി പങ്കുവെയ്ക്കുന്നതായി റാവു പറഞ്ഞു തമിഴ്നാട് ഗവ സംസ്ഥാനത്തിന് ഒരുലക്ഷം ലിറ്റർ അമ്മ ബ്രാന്റ് കുപ്പിവെളളം നൽകി

ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ പുനർനിർമാണങ്ങളിൽ പങ്കാളികളാകാൻ താൽപര്യമുളള യുവാക്കൾക്ക് നെഹ്റു യുവ കേന്ദ്ര പാലക്കാട് ജില്ലയിൽ പരിശീലനം നൽകും പ്ലബിംഗ് ഇലക്ട്രിക്കൽ വയറിംഗ് റിപ്പയറിംങ് പെയിന്റിംഗ് ഫാബ്രിക്കേ ഷൻ തുടങ്ങി നിർമാണ ജോലികളിലാണ് പരിശീലനം നൽകു ന്നത്

നെല്ലിയാമ്പതി ചുരംറോഡിൽ ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യ തയുളളതിനാൽ ജാഗ്രതപാലിക്കണുമെന്ന് അധികൃതർ മുന്നറി യിപ്പ് നൽകി തകർന്ന കുണ്ടറച്ചോല പാലം മുതൽ ചെറുനല്ലി വരെ മണ്ണിടിച്ചിൽ സാധ്യത കൂടുത്ലുളള സ്ഥലങ്ങളിൽ വിശദ പരിശോധന നടത്തും കുണ്ട്റച്ചോലയിൽ പുതിയപാലം നിർമി ക്കുന്നതിന് പ്രാഥമിക പരിശ്ശോധന പൂർത്തിയായി

മഴക്കെടുതി ഏറെ ബാധിച്ച നില മ്പൂർ താലൂക്കിലാണ് കൂടുതൽ കുടുംബങ്ങൾ ക്യാമ്പിലുളളത്

കുട്ടനാട്ടിൽ ജലനി രപ്പ് താഴ്ന്നു തുടങ്ങി ചെങ്ങന്നൂരിൽ ജനജീവിതം സാധാരണ നിലയിലെത്തുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും കൂടുതൽ പേർ വീടുകളിലേക്ക് മടങ്ങി

നാശനഷ്ടത്തിന്റെ പൂർണമായ കണക്കുകൾ തിങ്കളാഴ്ചയോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്

നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധൃതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു കാസർകോഡ് കണ്ണൂർ ജില്ലക ളിലും കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങളിലുമാണ് ശക്ത മായ മഴയ്ക്ക് സാധ്യത തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിലും ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ മലയോർ മേഖലയിലും മഴ ലഭി ക്കാനും സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിന് സാധൃതയുള്ളതിനാൽ രാത്രിസമയത്ത് മല യോര മേഖലയിലേക്ക് യാത്ര് പരിമിതപ്പെടുത്തണമെന്നും നിർദേശിച്ചിട്ടുണ്ട്

പ്രളയ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ കൊല്ലം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ അറ്റകുറ്റപ്പണികൾ തൊഴിലാളികൾക്ക് സ്വകാര്യ വർക്ക് ഷോപ്പുകളിലും ചെയ്യിക്കാമെന്നും ചെലവ് ഗവൺമെന്റ് വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരി പാടിയായ മൻ കി ബാത്ത് ഇന്ന്

ദൂരദർശന്റെ എല്ലാ ചാനലുകളും ഇത് സംപ്രേഷണം ചെയ്യും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും വാർത്താവിതരണ മന്ത്രാ ലയത്തിന്റെയും യു ട്യൂബ് ചാനലുകളിലും ആകാശവാണി വെബ്സൈറ്റിലും മൻ കി ബാത്ത് ലഭ്യമാകും

രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി മൂന്ന് പ്രധാനകമ്മിറ്റി കൾ രൂപീകരിച്ചു

ശശിതരൂരിനെയും ബിന്ദുകൃഷ്ണയെയും ഉൾപ്പെടു ത്തി

മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കാലം ചെയ്ത ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തോമസ് മാർ അത്തനാസിയോ സിന്റെ കബറടക്കം ഇന്ന് പത്തനംതിട്ട ഓതറ സെന്റ് ജോർജ്ജ് ദേറായിൽ നടക്കും

ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആദ്യസ്വർണം പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ തജീന്ദർപാൽസിം ഗാണ് സ്വർണം നേടിയത്

ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ഏഴാം സ്വർണമാണി ത്

ലോംങ്ജമ്പിൽ മലയാളിതാരം എം ശ്രീശങ്കർ ഫൈനലിലെത്തി

കൊൽക്കത്തയിൽ ആദ്യമത്സര ത്തിൽ രണ്ട്തവണ ചാമ്പ്യൻമാരായ അത്ലറ്റികോ ഡി കൊൽകൊത്ത രണ്ട് തവണ റണ്ണേഴ്സ് അപ്പായ കേരളാ ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ടും കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് കോളയാട്ട് ബൈക്ക് യാത്ര ക്കാരായ രണ്ടുപ്പേർക്ക് കുത്തേറ്റു

ഇന്നലെ രാത്രി ഒൻപതര യോടെയായിരുന്നു സംഭവം ബൈക്ക്റൈസ് ചെയ്തതിനെത്തു ടർന്നുണ്ടായ തർക്കത്തിൽ മറ്റൊരു ബൈക്കിൽ വന്നയാളാണ് കുത്തിയതെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും പൊലീസ് പറ ഞ്ഞു മലപ്പുറം മേലാറ്റൂർ എടയാറ്റൂരിൽ ഒമ്പതു വയസ്സുകാരനെ പുഴയിൽ തളളിയിട്ടു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മംഗ ലത്തൊടി മുഹമ്മദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സഹോദരൻ അബ്ദുൽ സലീമിന്റെ മകൻ ഷഹീനെ തട്ടിക്കൊ ണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെയാണ് മുഹ മ്മദിനെ പൊലീസ് അസ്റ്റ് ചെയ്തത് മുതിർന്ന അഭിഭാഷകനും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് മുൻ പ്രസിഡന്റുമായ പുളിക്കൂൽ അബൂബക്കർ കൊച്ചിയിൽ അന്തരിച്ചു

ഖബറടക്കം ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ മലപ്പുറം ജില്ലയിൽ കാളികാവിൽ തോട്ടം തൊഴിലാളിയെ കാട്ടാന ചവിട്ടിക്കൊന്നു

കണ്ണൂർ വാരത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു വാരത്തെ രാജേഷാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു അപകടം കൊല്ലം ഇരവിപുരത്ത് മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു

ഇ്ടക്കുന്നം ലക്ഷംവീട് കോളനിയിൽ രാജുവാണ് മരിച്ചത് മകൻ അച്ചുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കരിപ്പൂർ സ്വർണക്കടത്ത് കേസിലെ പിടികിട്ടാപ്പുള്ളിയും മൂന്നാംപ്രതിയുമായ അബുല്ലൈസിനെ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് പിടികൂടി തൃശൂരിൽ ബന്ധുവിന്റെ വിവാഹത്തി നായി രഹസ്യമായി എത്തിയപ്പോഴാണ് ഇയാൾ പിടിയിലായ ത്